ഉല്പാദിപ്പിക്കുന്നതിന് പ്രത്യേക പരിസ്ഥിതി അനുമതി ആവശ്യമില്ലെന്ന് ക്യേന്ദ്രം

ഉത്തരേന്തൃൻ സംസ്ഥാനങ്ങളിലെ വായു ന് മലിനീകരണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു

മഹ ചുഴലിക്കാറ്റ് നാളെ ഗുജറാത്ത് തീരം വിടും

ഇന്തൃയുടെ സാത്ഥിക് സായിരാജ് രെങ്കി റെഡ്ഡി ചിരാഗ് റെഡ്നി സഖ്യം രണ്ടാം റൌണ്ടിൽ

പി കരാറിൽ നിന്ന് പിന്മാറിയതെന്ന് ഇന്ത്യ രാജ്യത്തെ കർഷകരുടെയും ചെറുകിട വ്യാപാരികളുടെയും താൽപ്പര്യം സംരക്ഷിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചരിത്രപരമായ പിൻമാറ്റമെന്ന് വാണിജ്യമന്ത്രി പിയുഷ് ഗോയൽ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇ പി അംഗരാജ്യങ്ങൾക്കു മുൻപിൽ ്ര ഇന്ത്യ അതിന്റെ വാദങ്ങൾ നിരത്തിയതായും ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ദേശീയ താൽപ്പര്യം ബലികഴിക്കാൻ ഒരുക്കമല്ലെന്നും മന്ത്രി പ്ലീയൂഷ് ഗോയൽ വ്യക്തമാക്കി സന്തുലിതമായ വ്യാപാരക്കമ്മി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള മികച്ച വ്യാപ്പാര അന്തരീക്ഷം ഗുണകരമല്ലാത്ത ഇറക്കുമതിയ്ക്ക് കടിഞ്ഞാണിട്ടുക്ക് എന്നിവയാണ് ഇന്ത്യ മുന്നോട്ടു വച്ച ആവശ്യങ്ങൾ കഴിഞ്ഞ എട്ട് വ്ർഷ്മായി നടക്കുന്ന ചർച്ചകളിലും ഇന്ത്യയുടെ നയങ്ങൾ ഇതിന്ത്നെയായിരുന്നുവെന്ന് ശ്രീ

പ്രിപ്പക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയവേ രാജ്യതാൽപ്പര്യത്തിനു വിരുദ്ധമായി തീരുമാനങ്ങൾ കൈക്കൊണ്ടത് യു

എ ഗവൺമെന്റിന്റെ കാലത്താണെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ പിഴവുകൾ പരിഹരിക്കാനുള്ള നടപടികളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വ്യാപാര കരാറിലും ധൃതിപിടിച്ച തീരുമാനം രാജ്യം കൈക്കൊള്ളില്ലെന്നും പ്രഥമ പരിഗണന രാജ്യതാൽപ്പര്യം തന്നെയായിരിക്കുമെന്നും ശ്രീ പീയുഷ് ഗോയൽ എടുത്തുപറഞ്ഞു

കർഷകർക്കും പഞ്ചസാര കമ്പനികൾക്കും ഏറെ ഗുണകരമാണ് തീരുമാനം കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന കാര്യമന്ത്രി പ്രകാശ് ജാവേദ്ക്കറാണ് ഇക്കാര്യം ട്വീറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചത് കൂടുതൽ പരിസ്ഥിതി മലിനീകരണമില്ലാതെ തന്നെ എഥനോൾ ഉൽപാദിപ്പിക്കാൻ കഴിയും പഞ്ചസാര നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിൽ നിരവധി ഉപോൽപ്പന്നങ്ങൾ ഉല്പാദിപ്പിക്കുന്നുണ്ട്

അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് അംഗങ്ങൾ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പിക്കാനാണ് ഈ രാജ്യാന്തര സംഘടനയുടെ ലക്ഷ്യം

ഇതിനകം അഫ്ഗാനിസ്ഥാൻ ഈജിപ്ത് തുർക്കി ഇറാൻ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു സവാളയുടെ വിലയും ലഭ്യതയും വിലയിരുത്താൻ കൂടിയ മന്ത്രിതല സമിതിയുടേതാണ് തീരുമാനം കേന്ദ്ര ഉപഭോക്തൃ കാര്യ സെക്രട്ടറി അവിനാഷ് കുമാർ ശ്രീ വാസ്തവയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗം സമീപകാലത്തെ സമയം തെറ്റിയുള്ള മഴയും തുടരെയുള്ള ചുഴലിക്കാറ്റുമാണ് സവാളയുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കിയതെന്ന് വിലയിരുത്തി വരും ദിവസങ്ങളിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു

ബി ഐ

തമിഴ്നാട് കർണാടക ആന്ധ്ര പ്രദേശ് ഛണ്ഡിഗഡ് ഡൽഹി ഗുജറാത്ത് ഹരിയാന തെലങ്കാന ഉത്താഖണ്ഡ്എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്

ബി ഐ

ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു

ഭവന നിർമ്മാണ കമ്പനിക്ക് വഴിവിട്ട വായ്പ്പ അനുവദിച്ചതിനെ തുടർന്ന് ബാങ്കിന്റെ എം

ഉൾപ്പെടെ അറസ്റ്റിലാണ്

ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക അവലോകനയോഗം വിളിച്ചിരുന്നു പടിഞ്ഞാറൻ മേഖലയിൽ ചുഴലിക്കാറ്റിനു ശേഷമുള്ള സ്ഥിതിയും പ്രധാനമന്ത്രി വിലിയിരുത്തി ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനായി കൈക്കൊണ്ട നടപടികൾ കാബിനറ്റ് സെക്രട്ടറി രാജീവ് ചൌബ അറിയിച്ചു പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ കൊയ്ത്തുകാലത്തിനു ശേഷം വയലിനു തീയിടുന്നത് സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട് തീയിടരുതെന്ന നിർദ്ദേശം ലംഘിക്കുന്ന കർഷകരിൽ നിന്ന് പിഴ ഈടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വായുമലിനീകരണം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതി ഡൽഹി പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചിരുന്നു എല്ലാ വർഷവും ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം വർധിച്ചു വരുന്നതിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു പാഴ് വസ്തുക്കൾ കത്തിക്കുന്ന സ്ഥലങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ അധികാരികളോട് ആവശ്യപ്പെട്ടു

മോശം കാലാവസ്ഥയിൽ ഇവിടങ്ങളിലെ ഉപരിതല ഗതാഗതം തടസ്സപ്പെടാമെന്നും മുന്നറിയിപ്പുണ്ട് സോജില ശ്രീനഗർ ജമ്മു ലേ മനാലി ചുരങ്ങളിലുമാണ് മഞ്ഞു വീഴ്ചയും മണ്ണിടിച്ചിലും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത

അടുത്ത രണ്ടു ദിവസം ഗുജറാത്ത് സൌരാഷ്ട്ര മേഖലയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധൃത്യുണ്ട്

ഇതിന്റെ ഭാഗമായി ബംഗാൾ ഒഡീഷ തീരത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ശനിയാഴ്ചവരെ വ്യാപകമഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയോടെ അതിതീവ്ര ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങും

കിൻഫ്രയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വോയ്സ് പദ്ധതിയ്ക്കായി കിൻഫ്ര തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലും വർക്കലയിലും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് തോന്നയ്ക്കലിൽ തുടങ്ങുന്ന ആയുർവേദ സൂപ്പർ സ്പെഷാലിറ്റി ഹോസ്പിറ്റൽ വിദേശികൾക്ക് കൂടി ആയൂർവേദം പഠിക്കാനുതകുന്ന നോളജ് സെൻറർ റിസർച്ച് സെൻറർ ഫിനിഷിങ് സ്കൂൾ തുടങ്ങിയ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആദ്യ പദ്ധതി

സെബിയുടെ അംഗീകാരമുള്ള ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ് ഫണ്ടായ സമാന ഗ്ലോബൽ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ തുടങ്ങുന്ന ആദ്യ പദ്ധതിയാണിത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആഭ്യന്തരം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി നിയമം പട്ടികജാതി പട്ടികവർഗ വികസനം വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഇതിൽ അംഗങ്ങളായിരിക്കും രണ്ടു മാസം കൂടുമ്പോൾ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കണം

തായ്ലാന്റ് ഓപ്പൺ ചാമ്പ്യന്മാരായ സാത്ഥിക് ചിരാഗ് സഖ്യം അമേരിക്കൻ ജോഡികളായ ഫിലിപ് ച്യൂ റയാൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അടുത്ത റൌണ്ടിലേക്ക് കടന്നത്

രണ്ടാം റൌണ്ടിൽ ജപ്പാന്റെ ആറാം സീഡ് താരങ്ങളായ ഹിരോയുകി യുതാ വൃത്നേബ് സഖ്യത്തെ ഇന്ത്യൻ ജോഡികൾ നേരിടും വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ അശ്വനി പൊന്നപ്പ സിക്കി റെഡ്ഡി സഖ്യം ചൈനീസ് ജോഡികളോട് തോറ്റ് പുറത്തായി

നീതി നിർവ്വഹണ വ്യവസ്ഥയുടെ ഭാഗമായ പോലീസും അഭിഭാഷകരും സഹകരിച്ച് നീങ്ങണം സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസുകാർക്ക് സൌജന്യ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഗവർണർ ഡൽഹി പോലീസ് കമ്മീഷണർ അമൂല്യ പട്നായികിനോട് നിർദ്ദേശിച്ചു